ക്ഷേമപദ്ധതികൾ ദേശീയ സുരക്ഷ എന്നിവ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബിജെപി തീരുമാനം

വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കേരളത്തിൽ

ലോകബാങ്കുമായി കരാർ ഒപ്പിട്ടു

ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബിജെപി മുഖ്യമന്ത്രിമാരുടെ യോഗത്തെത്തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഗവൺമെന്റിന്റെ ജനക്ഷേമ തീരുമാനങ്ങളും നടപടികളും വിശദീകരിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ദളിതൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ദദിദ്രർ കൃഷിക്കാർ എന്നിവർക്കും ഗുണം ചെയ്യുന്നതായിരുന്നു ക്ഷേമ പദ്ധതികൾ പാർട്ടി നേതാക്കാൾ വരാൻ പോരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും മൂന്നു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുളള നടപടികൾ സ്വീകരിക്കണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺസിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു

ജമ്മുവിലെ അംഫല്ല ജയിലിലെ ഡപ്യൂട്ടി സൂപ്രണ്ട് ഫിറോസ് ലോണയെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പാക് അധീന കശ്മിരിലെ ഭീകരർക്ക് ആയുധ പരിശീലനം നൽകിയെന്നാണ് കേസ്

ഫിറോസ് ലോണയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

ആർ പൂവമ്മ ഹിമാദാസ് ആരോഗ്യ രാജീവ് എന്നിവർ അടങ്ങിയ ടീമാണ് വെളളി നേടിയത് വനിതാ ബാഡ്മിന്റണിൽ പി

സിന്ധു അമ്പെയ്ത്തിൽ പുരുഷ വനിതാ ടീമുകൾ വനിതകളുടെ കുറാഷിൽ പിങ്കി ബൽഹാര എന്നിവരാണ് വെളളി നേടിയ മറ്റുളളവർ

മിക്സഡ് റിലേയിൽ ഇന്ത്യയുടെ ഹിമാദാസ് ബാറ്റൺ വാങ്ങുന്നത് ബഹ്റൈൻതാരം തടഞ്ഞുവെന്ന ഇന്ത്യയുടെ പരാതി ഇന്ന് പരിഗണിക്കും

ഇന്ന് പുരുഷ വനിതാ വിഭാഗം നടത്തം ഹെപ്താതലൺ പുരുഷൻമാരുടെ ട്രിപ്പിൾ ജംപ് വനിതാ ഹോക്കി ബോക്സിങ്ങ് കുറാഷ് ജൂഡോ എന്നീ വിഭാഗങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുന്നത്

പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന സംസ്ഥാനത്ത് ഇൻഷറൻസ് കമ്പനികളും ബാങ്കുകളും നടത്തുന്ന ആശ്വാസ പ്രവർത്തനം വിലയിരുത്തുന്നിതിനായാണ് കേന്ദ്രമന്ത്രി എത്തുന്നത് കേന്ദ്ര അഡീഷണൽ സെക്രട്ടറി ദേബാശിശ് പാണ്ഡെ ധനമന്ത്രാലയത്തിലെ ഉപദേഷ്ടാവ് എൻ

സംസ്ഥാന ഗവൺമെന്റുമായും ബന്ധപ്പെട്ട ഏജൻസികളുമായും സംഘം ചർച്ച നടത്തും

രാവിലെ എറണാകുളം ജില്ലയിലെ കൃാംപുകളിൽ വിതരണം ചെയ്യാൻ ഡിസിസി സംഭരിച്ച ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യസാധനങ്ങളും നിറച്ച ലോറികളുടെ യാത്ര ശ്രീ രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് പോകുന്ന അദ്ദേഹം അവിടെനിന്നു ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്കു തിരിക്കും

നേരത്തെ രാജ്യവ്യാപകമായി ആദായനികുതി വകുപ്പ് സമയം നീട്ടിയിരുന്നു

പതിനാലാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക പ്രമേയം അവതരിപ്പിക്കും പ്രളയക്കെടുതി നേരിടാൻ കൈക്കൊണ്ട നടപടികളും പുനരധിവാസ പ്രവർത്തനവും സഭ ചർച്ച ചെയ്യും

അതേസമയം കുട്ടനാട്ടിൽ ഇന്നലെ ആരംഭിച്ച മഹാശുചീകരണ യജ്ഞം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു

ഇവ ഹരിത സഹായ ഏജൻസികളായ ക്ലീൻ കേരള നിറവ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് സംസ്കരിക്കും പ്രളയക്കെടുതിയിൽ നിന്ന് കുട്ടനാടിനെ കരകയറ്റുന്നതിനുള്ള മഹാശുചീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യ ദിനത്തിൽ മന്ത്രിമാരടക്കം നേതൃത്വം നൽകി

മന്ത്രിമാരായ പി തിലോത്തമൻ കിടങ്ങറയിലും ജി സുധാകരൻ കൈനകരിയിലും തോമസ് ഐസക് പുളിങ്കുന്നിലും ശുചീകരണത്തിൽ പങ്കാളികളായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അധ്യയനത്തിന് പകരം പ്രളയഭീതി മൂലമുള്ള കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാനൃം നൽകുന്നത് സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം മുടങ്ങാതിരിക്കാൻ ക്യാമ്പുകൾ മറ്റ് കേന്ദ്രങ്ങളിലേയ്ക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്

ഗോതമ്പ് അരി പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉത്പാദനത്തിലും മികച്ച വളർച്ചയാണ്

ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്രഗവൺമെന്റിന് വേണ്ടി ധനമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അമീർകുമാറും ലോകബാങ്കിന് വേണ്ടി കൺട്രി ആക്ടിംഗ് ഡയറക്ടർ ഹിഷം അബ്ദോയുമാണ് കരാറിൽ ഒപ്പിട്ടത്

ഇത് സംബന്ധിച്ച പ്രമേയത്തിന് പഞ്ചാബ് നിയമസഭ അംഗീകാരം നൽകി ബർഗാഡി ബെഹ്ബാൽകലൻ കേസുകളാണ് സിബിഐയിൽ നിന്നും ഏറ്റെടുത്ത് പ്രത്യേക അന്വേഷണ വിഭാഗത്തെ ഏൽപ്പിക്കുന്നത്

മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലെ സുരക്ഷ മറ്റ് ക്രമീകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ചകൾ നടത്തും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുനിൽ അറോറ അശോക് ലവാസ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി

ഒഡീഷയിലെ പടിഞ്ഞാറൻ ഉൾനാടൻ തീരദേശ ജില്ലകളിൽ സ്പെഷ്യൽ റീലീഫ് കമ്മീഷണർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്

മഹാരാഷ്ട്ര തീരദേശ മാനേജ്മെന്റ് അതോറിറ്റി കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റ് എന്നിവർ തീരദേശ നിയമങ്ങൾ ലംഘിച്ചും പൊതു അഭിപ്രായം കേൾക്കാതെയുമാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന വിവരം മുതിർന്ന അഭിഭാഷകനായ ആസ്പി ചിനോയ് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം

മുംബൈ റാഞ്ചി ഹൈദരാബാദ് ഡൽഹിഫരീദാബാദ് ഗോവ എന്നിവിടങ്ങളിലുളള ഇവരുടെ വീടുകളിൽ പൂനെ തെലങ്കാനാ ഛത്തീസ്ഗഡ് പൊലീസ് സംഘം നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റുണ്ടായത്